നൂതന കേന്ദ്ര പദ്ധതിയായ അടൽ ഭൂജൽ യോജനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും

പഞ്ചായത്ത് തലത്തിലെ ഭൂജല മേൽനോട്ടവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്

പദ്ധതി വഴി കർഷകരുടെ വരുമാനത്തിൽ വർദ്ധനയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ചെറുകിട ജലസേചനം വിളപ്പ്പെപ്പിധ്യം ഊർജ്ജ ഉത്പാദനം എന്നിവയിൽ ഭൂഗർഭജലത്തിന്റെ ശരിയ്ക്ക് പ്രീനിയോഗവും പദ്ധതി വഴി സാധ്യമാകും

മൂന്ന് പ്രാവശ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം

ജെ പിയിലെ മുതിർന്ന നേതാവായിരുന്ന വാജ്പേയി തന്റെ ജീവിതകാലത്ത് മുറുകെപ്പിടിച്ച ഉയർന്ന മൂല്യങ്ങൾ എന്നും ഓർമ്മിക്കത്തക്കതാണ് പുത്തൻ സാമ്പത്തിക നയങ്ങളിലെ ഉൾക്കാഴ്ച ബഹുമുഖ പദ്ധതികളിലെ താത്പര്യം ദേശീയ പാത വികസനത്തിലെ പ്രതിബദ്ധത എന്നിവ അദ്ദേഹം ഉയർത്തിപിടിച്ച വിശിഷ്ട മൂല്യങ്ങളിൽ ചിലതാണ്

മികച്ച പ്രാസംഗികൻ എഴുത്തുകാരൻ കവി സാമൂഹ്യ പ്രവർത്തകൻ പത്ര പ്രവർത്തകൻ എന്നീ നിലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു നേതാക്കന്മാരുടെ നേതാവായാണ് വാജ്പേയി പൊതുവേ അറിയപ്പെടുന്നത്

അടൽ ബിഹാരി മെഡിക്കൽ സർവ്വകലാശാലയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവ്വഹിക്കും അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികദിനത്തോടനുബന്ധിച്ച് ഇന്ന് നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്

ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിനായി ക്രിസ്തുദേവന്റെ ജന്മദേശമായ ബത്ലഹേമിൽ എത്തിയിരുന്നു

ക്രിസ്ത്യൻ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം

ഈ ് മനുഷ്യത്തിന്റേയും സാഹോദര്യത്തിന്റേയും കാരുണ്യത്തിന്റെയും സന്ദേശമുയർത്തിയാണ് ക്രിസ്തുദേവന്റെ തിരുപിറവി ആഘോഷിക്കുന്നതെന്ന് രാഷ്ട്രപതി ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു

ശാന്തിയും സമാധാനവും ആഹ്ലാദവും നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു

ഇന്നലെ രാത്രി ഗവർണ്ണർ ദ്രൌപതി മുർമുവുവിനെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അംഗീകാരം സോറൻ ഉന്നയിച്ചു

തിരഞ്ഞെടുപ്പിൽ ജെ എം എം കോൺഗ്രസ് ആർ ജെ

യും ഹേമന്ത് സോറന് പിൻന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഗവർണ്ണർക്ക് സമർപ്പിച്ചു

മൂന്ന് സേനാ വിഭാഗങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുള്ള പ്രതിരോധ സേനാ മേധാവിയുടെ നിയമനത്തിനും കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകി ഫോർസ്റ്റാർ ജനറൽ പദവിയോട് കൂടിയുള്ള പ്രതിരോധ സേന മേധാവി പ്രതിരോധ മന്ത്രാലയത്തിനു കീഴിലുള്ള സേനാകാരൃ വകുപ്പിന്റെ മേൽനോട്ടം വഹിക്കും

റെയിൽവേയിലെ എട്ട് ഗ്രൂപ്പ് എ സർവീസുകൾ യോജിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസ് രൂപീകരിക്കാൻ അനുമതി നൽകിയതായി കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ അറിയിച്ചു ആറായിരം കോടി രൂപ ചെലവ് വരുന്ന അടൽ ഭൂജൽ യോജന പദ്ധതിയ്ക്കും കേന്ദ്രമന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി

ഇതിൽ സാർനാഥ് ചൌകന്തി സ്തൂപയിലെ ബുദ്ധ അവശേഷിപ്പുകൾ ഖുഷി നഗർ പിപരാഹ്വയിലെ മഹാ പരിനിർവാണ ക്ഷേത്രം സ്രാവസ്തി എന്നിവ ഉൾപ്പെടുന്നു വിദേശ വിനോദ സഞ്ചാരികളെ ഉദ്ദേശിച്ചാണ് എ

ഐ യ്ക്ക് ഇത് സംബന്ധിച്ച പുതിയ നിർദ്ദേശം നൽകിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞൂ

ജനസംഖ്യാ രജിസ്റ്ററിന്റെ ഭാഗമായി ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ ദേശീയ പൌരത്വ പട്ടികയ്ക്കായി ഉപയോഗിക്കില്ലെന്നും ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി ദേശീയ ജനസംഖ്യ രജിസ്റ്ററിനെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർ പാവപ്പെട്ടവർക്കും ന്യൂനപക്ഷങ്ങൾക്കുമുള്ള ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്

എ ഗവൺമെന്റിന്റെ കാലത്താണ് ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു

ഹരിയാനയെ പ്രതിനിധീകരിക്കുന്ന ഭാക്കർ വനിതകളുടെ എയർ പിസ്റ്റൾ ഇനത്തിലാണ് നാല് സ്വർണം നേടിയത്

മനൂപ് ഭാക്കറും യശസ്ഥിനിയും അടുത്തവർഷം നടക്കുന്ന ടോക്കിയോ ഒളിംമ്പിക്സിലേക്ക് നേരത്തേ തന്നെ യോഗൃത നേടിയിട്ടുണ്ട്

ന്യൂഡൽഹിയിൽ നടന്ന ആകാശ്പ്പാണി വാർഷിക പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായ്ക്കിരുന്നു് അദ്ദേഹം